ഡൽഹിയിലെ നേതാജി മ്യൂസിയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രട്ടത്തിന് സമർപ്പിച്ചു

രാഷ്ട്രം അദ്ദേഹത്തിന് രാജ്യത്തെമ്പാടും നേതാജിയെ അനുസ്മരിച്ചുകൊണ്ട് നിരവധി പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്

പാർലമെന്റിന്റെ സെന്റർ ഹാളിൽ വിവിധ നേതാക്കൾ നേതാജിയോടുള്ള ആദരസൂചകമായി പുഷ്പാർച്ചന നടത്തും അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ ഒഡീഷയിലെ കട്ടകിൽ പ്രത്യേക പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ സ്ഥാപിച്ച നേതാജി മ്യൂസിയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമി എന്നിവയുമായി ബന്ധപ്പെട്ട് നിരവധി വസ്തുക്കളാണ് മ്യൂസിയത്തിൽ പ്രദർശനത്തിന് ഒരുക്കിയിട്ടുള്ളത് നേതാജിയുടെ യൂണിഫോം മെഡലുകൾ ബാഡ്ജുകൾ മുതൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന തടികസേര വാൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു

നേതാജിയോടുള്ള ആദരസൂചകമായി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ റോസ് ഐലന്റിനെ പുനഃനാമകരണം ചെയ്ത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപായി കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ധനകാര്യ പങ്കാളിത്ത കരാറിനും ചർച്ചയിൽ അന്തിമ രൂപം നൽകിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇരു രാജ്യങ്ങളും ധാരണയായിട്ടുള്ള പദ്ധതികളുടെ നിലവിലെ പുരോഗതിയും ഇരു ഭരണാധികാരികളും വിലയിരുത്തി

സമാപന സമ്മേളനം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യും

സമ്മേളനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം രണ്ടാം ദിവസമായ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു സമാപനത്തിനുശേഷം പ്രതിനിധികൾ ഇന്ന് പ്രയാഗ് രാജിൽ നടക്കുന്ന കുംഭമേള സന്ദർശിക്കും

അസ്സാമിനെ കൂടാത്തെ മറ്റ് ചില സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പിനുള്ള തയ്യാര്രടുപ്പുകൾ അവലോകനം ചെയ്തതായി തെരഞ്ഞെടുപ്പ് കമ്മീഷ്ടൻ പ്യൂക്തമാക്കി

കോൺഗ്രസ് രണ്ട് സീറ്റുകളിലും അസോം ഗണ പരിഷത്ത് ഒരു സീറ്റിലും വിജയിച്ചു സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ആറ് സീറ്റുകൾ ഇന്ന് രാവിലെയാണ് വോട്ടെണ്ണൽ അവസാനിച്ചത്

കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകളുടെ മികച്ച പ്രവർത്തനമാണ് ബി ജെ പിയുടെ മികച്ച വിജയത്തിന് കാരണമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രഞ്ജിത് കുമാർ ദാസ് പറഞ്ഞു

ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ അധൃക്ഷനായ ബഞ്ചാണ് ജാമൃം അനുവദിച്ചത്

ഉത്തർപ്രദേശിൽ ശക്തമായ മഴമൂലം ജനജീവിതം ദുസ്സഹമായി

വോയിസ് ഈ സീസണിലെ ഏറ്റവും കനത്തി മിഞ്ഞ് വീഴ്ചയാണ് ഇന്നലെ ഉത്തരാഖണ്ഡിൽ രേഖപ്പെടുത്തിയുത്

തലസ്ഥാനമായ ഡെറാഡൂണിൽ ഇന്നലെ ശക്തമായ മഴ ലഭിച്ചു

മോശം കാലാവസ്ഥയെ തുടർന്ന് ബദരീനാഥ് റിഷികേശ് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു മഞ്ഞുവീഴ്ച തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം മുന്നറിയിപ്പ് നൽകി

ഷിംല മണാലി കുഫ്രി നാർക്കണ്ഡ കൽപ്പ ഡൽഹൌസി എന്നിവിടങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ച ഉണ്ടായി മിക്കയിടങ്ങളിലും താപനില വളരെ താഴ്ന്ന നിലയിലാണ് കൂടിയ താപനിലയിൽ ആറ് മുതൽ ഏഴ് ഡിഗ്രി സെൽഷ്യസ് കുറവ് രേഖപ്പെടുത്തി ഉത്തർപ്രദേശിൽ ശക്തമായ മഴ ലഭിച്ചതിനെ തുടർന്ന് തണുത്ത കാലാവസ്ഥ തുടരുകയാണ് കൂടിയ താപനില സാധാരണ നിലയേക്കാൾ വളരെ താഴ്ന്ന് നിൽക്കുന്നു മുസാഫർ നഗർ മീററ്റ് ബറേലി ആഗ്ര ലഖ്നൌ എന്നീ ജില്ലകളിൽ കനത്ത മഴ ലഭിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഉച്ചയ്ക്ക് പ്രത്യേക വിമാനത്തിൽ കൊച്ചിയിൽ എത്തുന്നു പ്രിധാനമന്ത്രി കൊച്ചി റിഫൈനറിയിൽ നിരവധി വികസന പദ്ധ്തികൾക്ക് തുടക്കം കുറിക്കും തുടർന്ന് തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രി വൈകുന്നേരം അഞ്ചു മണിക്ക് തേക്കിൻകാട് മൈതാനിയിൽ സംഘടിപ്പിക്കുന്ന പൊതുജന റാലിയെ അഭിസംബോധന ചെയ്യും

മധുര വൃന്ദാവൻ എന്നിവിടങ്ങളിലെ രണ്ട് മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നു

അവർ അപകടനില തരണം ചെയ്തതായും ഡയറക്ടർ ജനറൽ പറഞ്ഞു കൃതൃമായ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല അപകടം നടന്ന സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടക്കുകയാണെന്നും അപകടത്തിൽ തകർന്ന കപ്പലുകളുടെ അവശിഷ്ടങ്ങൾ പ്രദേശത്ത് ചിതറിക്കിടക്കുന്നതായും ഡയറക്ടർ ജനറൽ വ്യക്തമാക്കി ക്രിമിയയെ റഷ്യയിൽ നിന്ന് വേർതിരിക്കുന്ന കെർച്ച് കടലിടുക്കിൽ ആണ് ടർക്കിഷ് ലിബിയൻ കപ്പലുകൾക്ക് ഇന്നലെ തീപിടിച്ചത്

എസ് സ്ഥിരീകരിച്ചു താലിബാൻ പ്രതിനിധികളുമായി സമാധാന ചർച്ചകൾക്കായി നിയോഗിച്ചു യു എസ് പ്രത്യേക പ്രതിനിധി സാൽമെ ഖാലിൽസാദാണ് നടത്തിയത്

സഞ്ജിത ചാനുവിന് ഏർപ്പെടുത്തിയ താൽക്കാലിക സസ്പെൻഷൻ അന്താരാഷ്ട്ര ഭാരോദ്വഹന ഫെഡറേഷൻ റദ്ദാക്കി

സസ്പെൻഷൻ സംബന്ധിച്ചു അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നും അവർ അറിയിച്ചു

മോശം കാലാവസ്ഥയെ തുടർന്ന് കളി ഇപ്പോൾ നിർത്തി വച്ചിട്ടുണ്ട്

കാർട്ടർ ഫൈനലിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ കരോളിന പ്ലിസ്ക്കോവയോടാണ് സെറീന പരാജയപ്പെട്ടത്